ചെന്നൈ ഉച്ചകോടി ഇന്തൃയും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ അദ്ധ്യായം തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മു കശ്മീരിലെ ലാൽചൌക്കീൽ ഭീകരവാദികളുടെ ഗ്രനേഡ് ന് ആക്രമണം താഴ്വരയിൽ പോസ്റ്റ്പെയ്ഡ് മൊബൈൽ കണക്ഷനുകൾ തിങ്കളാഴ്ച്ച് ഉച്ചയോടെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും

തന്നെ ജനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന സംവിധാനത്തിലേക്ക് രാജ്യം മാറുകയാണെന്ന് ആഭൃന്തരമന്ത്രി അമിത് ഷാ

മേരി കോമിനും ജമുനാ ബോറോയ്ക്കും വെങ്കലം

രണ്ട് ദിവസമായി നടന്ന ഉച്ചകോടിയിൽ ഇരുന്തോക്കളും നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി

ഉഭയകക്ഷി ചർച്ചകളിൽ വിദേശകാര്യമന്ത്രി ഡോ

കഴിഞ്ഞ ഏപ്രിലിൽ വുഹാനിൽ നടന്ന ഉച്ചകോടിയുടെ ആവേശം ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് ആക്കം കൂട്ടിയിരട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചെന്നൈയിലെ ഉച്ച്കോട്ടി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൽ പുതിയ ക്ടുഗ്ഗത്തിന് വഴിതുറന്നെന്നും ശ്രീ

പുരാതന കാലം മുതൽക്കേ ലോക്ക്ത്തെ വൻ സാമ്പത്തിക ശക്തികളായിരുന്ന ഇന്തൃയ്ക്കും ചൈനയും ഇപ്പോൾ മുൻനിര സ്ഥാനം വീണ്ടെടുക്കുകയാണെന്നും ംശ്രീ

ചൈനീസ് പ്രസിഡന്റിന്റെ ഛായാചിത്രം ആലേഖനം ചെയ്ത ഷോൾ പ്രധാനമന്ത്രി അതിഥിക്ക് സമ്മാനിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ അത്താഴം ഏറെ നേരം നീണ്ടുനിന്നു ബൃഹത്തും സങ്കീർണവുമായ സമൂഹങ്ങളുള്ള ഇരുരാജ്യങ്ങളും നേരിടുന്ന പൊതുപ്രശ്നങ്ങളാണ് മതമൌലികവാദവും ഭീകരവാദവും എന്ന് മോദിയുമായുള്ള ചർച്ചയ്ക്കിടെ ചൈനീസ് പ്രസിഡന്റ് അംഗീകരിച്ചു ഇരു നേതാക്കളും ദേശീയ കാഴ്ചപ്പാടുകളും ഭരണ നിർവഹണത്തിലെ മുൻഗണനകളും ചർച്ച ചെയ്തതോടൊപ്പം വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ആരാഞ്ഞു

ഇന്ത്യൻ ധനമന്ത്രിയും ചൈനീസ് വൈസ് പ്രിമിയറും ഇതിൽ അംഗങ്ങളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിലുള്ള അനൌദ്യോഗിക ഉച്ചകോടിയുടെ സമാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയാണ് ഇക്കാരൃം വെളിപ്പെടുത്തിയത് വ്യാപാരവും വിവിധ സേവനങ്ങളും ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാൻ പുതുതായി ഉന്നതതല സമിതി രൂപീകരിക്കാനും ഇരുനേതാക്കളും തീരുമാനിച്ചതായും ഗോഖലെ പറഞ്ഞു ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ മാമല്ലപുരത്ത് നടന്ന രണ്ടാം അനൌദ്യോഗിക ഉച്ചകോടി വിജയകരമായാണ് പര്യവസാനിച്ചത് രണ്ട് ദിവസങ്ങളായി നടന്ന ഉച്ചകോടിയിൽ നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു

ഈ വിസയിലൂടെ നിരവധി തവണ ഇന്ത്യയിലേക്ക് വന്നുപോകാൻ കഴിയും ഈ മാസം മുതൽ ക്ലെച്ചെനക്കാർക്ക് ഇ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷ നൽകാം

മാമല്ല്പ്പുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ്തീരുമാനം

ലാൽചൌക്കിന് സമീപമുള്ള ഹരിസിംഗ് ഹൈ സ്ട്രീറ്റ് മാർക്കറ്റിലാണ് ഭീകരവാദി ആക്രമണം ഉണ്ടായത് കമ്പോളത്തിലെ വ്യാപാരസ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിലും ഏതാനും കച്ചവടക്കാർ പരിസരത്ത് ഉണ്ടായിരുന്നു പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ

കഴിഞ്ഞ മാസം നാലിന് ലാന്റ് ലൈനുകളുടെയും സേവനം പൂർണമായി പുനഃസ്ഥാപിച്ചിരുന്നു

കടൽത്തീരത്തെ പ്രഭാത സവാരിക്കിടെയായിരുന്നു പ്രിധ്ന്ത്രിയുടെ ശുചീകരണദൌത്യം പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണെന്നും ആരോഗ്ച് ഉറപ്പു വരുത്തുന്നതിന് ഇത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പിന്നീട് ടിറ്ററിൽ കുറിച്ചു ഇന്ത്യ ചൈന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി മാമല്ലപുരത്ത് എത്തിയത്

എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ഓൺലൈൻ വഴി സുതാര്യമായി ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

കമ്പനിയുടെ മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർക്കുമെതിരെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരികയായിരുന്നു വിവിധ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയായി ലഭിച്ച പണം കമ്പനി തിരിമറി നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്

മുൻ കർണാടക ഉപ മുഖ്യമന്ത്രിയും കോൺൺസ് നേതാവുമായ ജി പരമേശ്വരയുമായി ബന്ധപ്പെട്ട ബിസിന്റസ്ട് ശ്രൂപ്പിലാണ് റെയ്ഡ് നടന്നത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുകയും സുരക്ഷാ വെല്ലുവിളി ഭീകരവാദം മുതലായവയെ നേരിടുകയുമാണ് ദർമാ ഗാഡിയൻ എന്ന് പേരിട്ടിരിക്കുന്ന സൈനികാഭ്യാസത്തിന്റെ ലക്ഷ്യം

സംയുക്ത സൈനികാഭ്യാസത്തിലൂടെ ഇരു സൈനൃങ്ങളും ഭീകരവാദത്തെ നേരിടുന്നതിന് സ്വായത്തമാക്കിയ പ്രവർത്തനരീതി കൈമാറും

അമ്പയറുടെ വിധിക്കെതിരെ ഇന്ത്യ അപ്പീൽ നൽകിയെങ്കിലും ഇന്റർനാഷണൽ ബോക്സിംഗ് കമ്മറ്റി അപ്പീൽ നിരാകരിക്കുകയായിരുന്നു

ഗ്രാം വിഭാഗത്തിൽ ആദ്യമായാണ് ലോകചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്

ഇന്ത്യയ്ക്കു വേണ്ടി രവിച്ചുന്ദ്രൻ നാല് വിക്കറ്റും ഉമേഷ് യാദവ് മൂന്നും മുഹമ്മദ് ഷമി ർണ്ടും വിക്കറ്റ് വീഴ്ത്തി

അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അംഗീക്രിക്കാൻ നഗരസഭയ്ക്ക് കഴിയില്ല

പൊളിക്കുന്നതിന് മുൻപ് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്ക ണമെന്ന് കൌൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവൺമെന്റ് നഗരസഭയെ അറിയിച്ചില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു ഇതു സംബന്ധിച്ച് കൌൺസിലിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിനെ അറിയിക്കുമെന്നും സബ്കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു

സമൂഹത്തിന് നൽകിയ സേവനവും മേഘാലയയുടെ പുരോഗതിയ്ക്കായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും എന്നും സ്മരിക്കപ്പെടുമെന്ന് ശ്രീ